പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് ഹസ്സൻ റുഹാനിയുമായി ഇന്ന് ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തും

പഞ്ചാബ് മഹാരാഷ്ട്ര സ്പ്യകരണ ബാങ്കിന് റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ നിയന്ത്രിണ്ങളിൽ ഇളവ്

പാലാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ

സൈപ്രസ് പ്രസിഡന്റുമായും ഗ്രീസ് പ്രധാനമന്ത്രിയുമായും ശ്രീ

എൻ

കൂടുതൽ വിവരങ്ങളുമായി കവിതാസുനു

കാല്ര്വസ്ഥാ വൃതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചക്ടോട്ടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ ന്യൂസിലാന്റ് അർമീനിയ എസ്തോണിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഫലപ്രദമായ ആശയവിനിമയം നടത്തിയിരുന്നു ക്രൈസ്റ്റ് ചർച്ച് ആക്രമണങ്ങൾക്ക് ശേഷം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ജസീന്ദ ആർഡേണുമായുള്ള മോദിയുടെ ആദ്യകൂടിക്കാഴ്ചയായിരുന്നു നടന്നതെന്ന് വിദേശകാരൃ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ആക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്തി തീവ്രവാദവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ ന്യൂസിലന്റ് പ്രധാനമന്തിയുമായി ചർച്ചകൾ നടത്തി അതേസമയം വിദേശകാര്യമന്ത്രി എസ്

ചൈന കുവൈറ്റ് ബലാറസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലെ വിദേശകാരൃമന്ത്രിമാരുമായും ശ്രീ

പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ലോകത്ത് വേറെങ്ങും കാണാനാകില്ലെന്ന് ശ്രീ ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ടെസ്ക് ആകാശവാണി

ന്യൂയോർക്കിൽ ഇന്നലെ നടന്ന സി ഇ

വിവരസാങ്കേതികം ഭക്ഷ്യസംസ്ക്രണം ഊർജ്ജം വ്യോമയാനം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തായി വ്യവസ്യായു സപ്രോത്സാഹന വകുപ്പ് സെക്രട്ടറി ഗുരുപ്രസാദ് മൊഹപിത്ര മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ബി എം ഇന്റൽ വാൾമാർട്ട് കൊക്കക്കോള ഹുവേയി തുടങ്ങിയ ഏഴ് ഓളം കമ്പനികൾ നിക്ഷേപം സംബന്ധിച്ച ആശയങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു ഇന്തൃയിൽ നിക്ഷേപ സാധൃതകൾ ഉണ്ടെന്ന വിശ്വാസം വ്യവസായ പ്രമുഖർ പ്രകടിപ്പിച്ചതായി ശ്രീ

ന്യൂഡൽഹിയിൽ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി

മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാലാവസ്ഥാവ്യതിയാനം എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

ചരിത്രസ്മാരക ങ്ങളും കലാനിർമ്മിതികളും സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിനൊപ്പം ജനങ്ങളുടെയും ചുമതലയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

മുൻ കേന്ദ്ര മന്ത്രിയും ബിജെപി നേതാവുമായിരുന്ന അരുൺ ജയ്റ്റ്ലിയുടെയും ആർ

ഡി എം പി യും മുതിർന്ന അഭിഭാഷകനുമായ രാം ജെത്മലാനിയുടെയും നിര്യാണങ്ങളെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്

വാദം പൂർത്തിയാക്കുന്നതിന് വ്യക്തമായ സമയപ്പട്ടിക തയ്യാറാക്കാൻ ബന്ധപ്പെട്ട കക്ഷികളോട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു ഭരണഘടനാ ബഞ്ച് ശനിയും ഞായറും ഒഴികെ ആഴ്ചയിൽ അഞ്ച് ദിവസവും ആയോധ്യ കേസിൽ വാദം കേൾക്കുന്നുണ്ട്

ഡി എസ് വിമത എം എൽ

ഇത് ചോദ്യം ചെയ്ത് എം എൽ എമാർ നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി തീരുമാനം എടുക്കുംവരെ ഉപതെരെഞ്ഞെടുപ്പ് അന്തിമ മാറ്റി വയ്ക്കുന്നതായി ഇലക്ഷൻ കമ്മീഷൻ സുപ്രീംകോടതിയിൽ അറിയിച്ചു

പാലാ കാർമൽ പബ്ലിക് സ്കൂളിലെ ഓഡിറ്റോറിയത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്

തുടർന്ന് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണും

തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകും

അഭിഭാഷകനായ മന്നു റോ്യി എറണാകുളത്ത് ഇടത് സ്വതന്ത്രനായി ജനവിധി തേടും മഞ്ചേശ്വരത്ത് സിപിഐ എം ജില്ലാ കമ്മിറ്റിയംഗം എം ശ്രുകർ റെയാണ് സ്ഥാനാർത്ഥി

ഡി എഫിലും ബിജെപിയിലും സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ തുടരുകയാണ്

ഡി എഫിന്റെയും ബിജെപിയു ടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥിപ്പട്ടിക പരിശോധിച്ച ജയസാദ്ധ്യത വിലയിരുത്തിയശേഷം മതി അന്തിമതീരുമാനമെന്നാണ് കോൺഗ്രസ്സ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ

കൂടുതൽ വിവരങ്ങളുമായി കവിതാസുനു വോയ്സ് ജമ്മുകശ്മീരിലെ നിയന്ത്രണരേഖകൾ ഉൾപ്പെടെയുളള ഉൾപ്രദേശ ങ്ങളിലെ സുരക്ഷാ സ്ഥിതിഗതികൾ രണ്ടാം സന്ദർശനത്തിൽ അജിത് ഡോവൽ വിലയിരുത്തും ജമ്മുകശ്മീരിലെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം പ്രിലയിരുത്തും

അതിനിടെ കശ്മീർ താഴ്വരയിൽ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലെയും നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്

ശ്രീനഗർ പട്ടണത്തിലും കശ്മീർ താഴ്വരയിലും ജനജീവിതം സാധാരണ നിലയിൽ എത്തിക്കഴിഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മറ്റുള്ള നിയന്ത്രണങ്ങളിൽ മാറ്റമില്ലു നിക്ഷേപകരുടെ ദുരിതം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയത്

ഡൽഹി ഗവൺമെന്റ് ആവശ്യപ്പെട്ട നാല് ട്രക്ക് ഉളളി ശനിയാഴ്ചയോടെ എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കെട്ടിടാവശിഷ്ടങ്ങൾക്കും മണ്ണിനുമടിയിൽപ്പെട്ടാണ് മൂന്ന് പേർ മരിച്ചത് ഭൂകമ്പത്തിനുശേഷം നിരവധി തവണ ഈ മേഖലയിൽ ശക്തമായ തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടു

തെരഞ്ഞെടുപ്പ് റാലികളെയും പോളിംഗ് സ്റ്റേഷനുകളെയും ലക്ഷ്യം വെച്ച് താലിബാൻ ഇതിനകം തന്നെ ആക്രമണഭീഷണി ഉയർത്തിയിട്ടുണ്ട് ത്ാലിബാൻ ഭീഷണിയും തെരഞ്ഞെടുപ്പ് കൃത്രിമം സംബന്ധിച്ച ആശ്മകളും വോട്ടിംഗ് ശതമാനം കുറയ്ക്കുമെന്നാണ് കരുതുന്നത്

അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് അമേരിക്കൻ ഉപരോധമെന്ന് ചൈനയുടെ വിദേശകാരൃവക്താവ് ഗെങ് ഷുവാങ് പറഞ്ഞു അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന് നിരവധി ചൈനീസ് കമ്പനികളെ ട്രംപ് ഭരണകൂടം നേരത്തെ കരിമ്പട്ടികയിൽപെടുത്തിയിരുന്നു